കർണാടക മെഡിക്കൽ സംഘട്ട് എത്തിച്ചേരാത്തതിനെ തുടർന്ന് കാസർകോട് കേർളുക്ർണാടക അതിർത്തിയിൽ പ്രതിസ്സി തുടരുന്നു മലയാളികളടക്കം പ്രവാസി ഇന്ത്യക്കാർക്ക് സുരക്ഷിത ക്വാറന്റൈൻ ഒരുക്കാൻ എംബസികൾ വഴി അടിയന്തര സൌകരൃം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കോവിഡ് വ്യാപനത്തിന്റെ സങ്കീർണ സാഹചര്യത്തിൽ ഇന്ന് ലോകാരോഗ്യ ദിനം

രോഗബാധ അതിരൂക്ഷമായ രാജ്യങ്ങളിലേക്ക് അവശ്യ മരുന്നുകൾ കയറ്റി അയക്കുമെന്ന് കേന്ദ്ര വിദേശകാരൃ മന്ത്രാലയം അറിയിച്ചു

ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മതിയായ അളവിൽ മരുന്ന് സംഭരിച്ച ശേഷമാകും കയറ്റി അയക്കുകയെന്നും മന്ത്രാലയം വൃക്തമാക്കി

എന്നാൽ മെഡിക്കൽ സംഘം ഇതുവരെ എത്തിയിട്ടില്ല എന്നത് പ്രതിസ്സ്യി തുടരാൻ കാരണമായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

കുവൈറ്റിൽ പൊതു മാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇന്ത്യൻ എംബസി നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ അഞ്ചു ദിനാർ ഫീസ് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു

എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായി വിവരങ്ങൾ ലഭ്യമായാലേ മരണസംഖ്യ സംബന്ധിച്ചു അന്തിമ കണക്ക് പറയാനാവൂവെന്നും ശ്രീ

കമ്പ്യൂട്ടർ സ്പെയർപാർട്സ് മൊബൈൽകടകൾ റീചാർജ്ജ് സെന്ററുകൾ എന്നിവ ആഴ്ചയിൽ ഒരു ദിവസം തുറക്കാൻ അനുമതി നൽകുന്ന കാര്യവും പരിശോധിക്കും ലോക്ക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ സാമ്പത്തികാവസ്ഥയെ പറ്റി ഗുലാത്തി പഠനകേന്ദ്രത്തോട് റിപ്പോർട്ട് നൽക്ട്രൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു

ഒന്നേകാൽ ലക്ഷത്തിലധികം ബെഡുകൾ സർക്കാർ സ്വകാരൃ ആശുപത്രികളിൽ ലഭ്യമാണ്

കോവിഡ് പ്രതിരോധത്തിന് ത്രിതല സംവിധാനം ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കാസർകോട് ജില്ലയിലെ ഒമ്പത് പേർക്കും മലപ്പുറം ജില്ലയിലെ രണ്ടു പേർക്കും കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു കാസർകോട് ജില്ലയിൽ രോഗം ബാധിച്ച ആറു പേർ വിദേശത്ത് നിന്ന് വന്നവരും മറ്റു മൂന്ന് പേർ രോഗബാധിതരുമായി ഇടപഴകിയവരുമാണ് മലപ്പുറത്തും കൊല്ലത്തും നിസാമുദീനിൽ നിന്ന് വന്നവരിലാണ് ് രോഗം സ്ഥിരീകരിച്ചത്

ജില്ലയിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

കോവിഡ് ഹോട്ട് സ്പോട്ട് ആയ ദൈറോ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ സ്രവം പരിശോധിച്ചത്

കേരളത്തിൽ ഇത്രയുമധികം പേർ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങുന്ന ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

പാലക്കാട് ഇൻട്രോ കോവിഡ് വ്യാപനത്തെ തുടർന്ന് വീടുകളിലും ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് നിരവധി പരിപാടികളാണ് സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ഇത്തരത്തിലുള്ള രണ്ടു കിയോസ്കുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്

ഝാർഖണ്ഡിലെ ഒരു ആശുപത്രിയിലും ഇത്തുരത്തിൽ ഒരു കിയോസ്ക് പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്

തമിഴ്നാട്ടിൽ അഞ്ചും കർണാടകയിൽ നാലുമാണ് മരണസംഖ്യ

പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ രോഗം ബാധിച്ച ശുചീകരണ തൊഴിലാളികളുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ഇത്തരം നീക്കങ്ങൾ സർക്കാർമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല

വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്സിജൻ കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങൾക്ക് നിർദേശം നൽകി രാജ്യത്തെ അവശ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് രേഖാമൂലം ഈ നിർദേശം നൽകിയത്

ക്ടോവിിഡ് വ്യാപനത്തിന്റെ സങ്കീർണ സാഹചര്യത്തിലാണ് ഒരു ലോക്യാര്യോഗ്യ ദിനം കൂടി കടന്നു പോകുന്നത്

മൂന്ന് ദിവസത്തെ അവധിക്ക് ്ശേഷമുള്ള പ്രവർത്തി ദിവസമാണ് ഇന്ന്

സ്വർണ വില സർവ്വകാല റെക്കോർഡിലേക്ക്